ആവശ്യക്കാരെ സൃഷ്ടിക്കാൻ പുതിയ കർമ്മപദ്ധതി തയാറാക്കിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

വാക്സിൻ വിതരണം ചെയ്തതായി ആരോഗൃമന്ത്രാലയം

എൽ ഫൂട്ബോളിൽ ഇന്ന് ഒഡീഷ ഈസ്റ്റ് ബംഗാൾ പോരാട്ടം

ദേശീയ കളിപ്പാട്ട കർമ്മപദ്ധതി തയ്യാറാക്കി വരികയാണെന്നും ആഗോള വിപണികളിൽ ഇന്ത്യൻ കളിക്കോപ്പുകൾക്ക് ആവശ്യക്കാരെ സൃഷ്ടിക്കാൻ ഇത് വഴി തുറക്കുമെന്നും പ്രധാനമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു

അടുത്ത മാസം രണ്ടാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ രാജ്യത്തുടനീളമുള്ള കളിപ്പാട്ട നിർമ്മാതാക്കൾ ഉപഭോക്താക്കൾ തുടങ്ങിയവർ ഓൺലൈനായി പങ്കെടുക്കും സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള കളിക്കോപ്പുകളിൽ ആഗോളതലത്തിൽ തന്നെ ഗവേഷണങ്ങൾ നടന്നതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

പരിസ്ഥിതി സൌഹൃദ കളിക്കോപ്പുകളില്ലേക്ക് ലോകത്തെ തിരികെയെത്തിക്കാൻ ഇന്തൃയ്ക്ക് കഴിയുമെന്ന് ആത്മവിശാസവും ശ്രീ

ഗുരു രവിദാസ് മഹാനായ സന്യാസിയും മതപരിഷ്കർത്താവുമായിരുന്നുവെന്നും മാനവികതയെ സേവിക്കുന്നതിനായി അദ്ദേഹം സ്വന്തം ജീവിതം സമർപ്പിച്ചുവെന്നും രാഷ്ട്രപതി തന്റെ സന്ദേശത്തിൽ പറഞ്ഞു

വെങ്കയ്യ നായിഡു ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

കേരളത്തിൽ പൊലീസ് നിരീക്ഷകനായി ദീപക് മിശ്രയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചു

ഭരണം നിലനിർത്താനുള്ള നീക്കങ്ങളുമായി ഇടതുമുന്നണിയും അട്ടിമറി വിജയം നേടാനായി കോൺഗ്രസും ശ്രമിക്കുമ്പോൾ സീറ്റുകളുടെ എണ്ണം ഉയർത്തുകയാണ് ബിജെപിയുടെ ലക്ഷ്യം കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരു മുന്നണിയ്ക്കും ഇതുവരെ തുടർച്ചയായി രണ്ട് തവണ അധികാരത്തിലേറാൻ അവസരമുണ്ടായിട്ടില്ല

ഭരണപക്ഷത്തുള്ള ബിജെപി അസം ഗണപരിഷത്ത് സഖ്യവുമായി സഹകരിച്ചാണ് ഇക്കുറി മത്സരിക്കുന്നത്

മറുപക്ഷത്ത് കോൺഗ്രസും ഇടതുപാർട്ടികളും എ

എഫും മറ്റുമടങ്ങുന്ന മഹാസഖ്യം ഇതിനോടകം സ്പ്രീറ്റ് ചർച്ച ആരംഭിച്ചു

ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ എഡിഷനുള്ള പത്രങ്ങളിലും പ്രാദേശിക പത്രത്തിലും പരസൃം നൽകണം

ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും ദൂരദർശനിലും പരിപാടി ലഭ്യമാകും

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഭക്തർ വീടുകളിലാണ് പൊങ്കാല അർപ്പിക്കുന്നത്

പണ്ടാര അടുപ്പിലെ പൊങ്കാല നിവേദിക്കുന്ന സമയത്ത് ഭക്തർ പൊങ്കാല വിഭവങ്ങൾ സ്വയം നിവേദിക്കണം

ഭല്ല ഭരണകൂടങ്ങൾക്ക് കത്തയച്ചിരുന്നു രാജ്യത്ത് ആക്ടീവ് പ്രക്ത്ക്സുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായതായി ചൂണ്ട്ടിക്കാട്ടിയ അദ്ദേഹം ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്നും ്ഓർമ്മിപ്പിച്ചു കണ്ടെയ്ന്മെന്റ് സോണുകളുടെ നിർണയം കോവിഡ് പ്രതിരോധ മാർഗ്ഗങ്ങളുടെ നടപ്പാക്കൽ എന്നിവ കൃത്യമായി പാലിക്കണമെന്നും സംസ്ഥാനങ്ങളോടും കേന്ദ്ര ഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്

വിശദവിവരങ്ങളുമായി അശ്വതി

ഒരുകോടിയിലേറെ പേർ രാജ്യത്ത് ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടിയതായും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഏറ്റവും കൂടുതൽ പേർ കോവിഡ് ബാധിച്ച് മരിച്ച രാജ്യങ്ങളിൽ രണ്ടാമതാണ് ബ്രസീൽ

എൽ ഫുട്ബോളിൽ ഇന്ന് ഒഡിഷ ഈസ്റ്റ് ബംഗാളിനെ നേരിടും

ഇന്നലെ നടന്ന മത്സരത്തിൽ കേരളാ ബ്ലാസ്റ്റേഴ്സിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി

ഇന്ന് വൈകിട്ട് ആറ് മണിവരെയാണ് ഹർത്താൽ ഭൂരിഭാഗം ബോട്ടുകളും ഇന്ന് കടലിൽ പോയിട്ടില്ല

രണ്ട് ഗ്രനേഡുകളും എട്ട് എ

സേനയും പോലീസും നടത്തിയ സംയുക്ത തെരച്ചിലിലാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്

ടി

എന്നിവയിലെ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപഭോക്താക്കളെ ശാക്തീകരിക്കുകയും അവരുടെ പ്ലാറ്റ്ഫോമുകളുടെ ്റ് റിന്റെ പാടിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചു